സമുദ്രാധിഷ്ഠിത സമ്പദ് വൃവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചതായി മാരിടൈം ഇന്ത്യ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

കേരളത്തിൽ മികച്ച് പ്രതികരണം ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വാക്സിൻ സ്വീകരിച്ചു

യൂറോപ്യൻ പര്യടന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീം ഇന്ന് ജർമ്മനിയെ നേരിടും

ലോകരാഷ്ട്രങ്ങളെ രാജ്യത്തിന്റെ വളർച്ചാ പാതയിൽ പങ്കാളികളാകാൻ ക്ഷണിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

തുറമുഖങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തു ന്നത് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സുപ്രധാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്തെ സമുദ്ര മേഖലയ്ക്ക്സമ്പന്നമായ ചരിത്രമാണ് ഉള്ളതെ ന്നും ഇന്ത്യൻ സംസ്കാരം തീരമേഖലകൾ കേന്ദ്രീകരിച്ചാണ് പുരോഗതി പ്രാപിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

അടുത്ത ദശാബ്ദത്തിലേക്കുള്ള ഇന്തൃയുടെ സമുദ്ര മേഖലാ വികസന പദ്ധതികൾ മൂന്നു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും

സീറ്റ് വിഭജനം സംബന്ധിച്ച് എൽഡിഎഫിൽ ഇന്നും ഉഭയകക്ഷി ചർച്ചകൾ നടക്കും മുന്നണിയിലെത്തിയ പുതിയ കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകുകയാണ് പ്രധാന ചർച്ചാവിഷയം

കെപിസിസി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോഗം ഇന്ന് സ്ഥാനാർഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമിട്ടു പ്രചാരണ തന്ത്രങ്ങളും മുദ്രാവാക്യവും സംബന്ധിച്ചും ചർച്ച നടന്നു

ജില്ലകളിൽ നിർദേശിക്കുന്ന പേരുകളിൽ നിന്നു സംസ്ഥാന നേതൃത്വം ചുരുക്കപ്പട്ടിക തയാറാക്കി കേന്ദ്രനേതൃത്വത്തിനു നൽകും കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കൂടി കണക്കിലെടുത്താണ് അന്തിമപട്ടികയ്ക്കു രൂപം നൽകുക

ബിജെപിയും കോൺഗ്രസും തമ്മിലാണ് പ്രധാന ഏറ്റുമുട്ടൽ

ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എൻജിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അസം സർക്കാർ എന്നിവരായിരിക്കും ഓഹരി വാങ്ങുക

രാജ്യത്തെ പ്രാദേശിക കളിപ്പാട്ട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് നാല് ദിവസം നീണ്ടു നിന്ന മേള സംഘടിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് മേള ഉദ്ഘാടനം ചെയ്തത് കേരളമുൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരത്തോളം കളിപ്പാട്ട നിർമ്മാതാക്കൾ മേളയിൽ പങ്കെടുത്തു

കേരളത്തിലൂർ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം കുറയുന്നു

ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം ഒരു കോടി എട്ട് ലക്ഷത്തോടടുക്കുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പല ജില്ലകളിലും ലക്ഷ്യമിട്ടതിലും കൂടുതൽ പേർ ആദ്യദിനം തന്നെ വാക്സിൻ സ്വീകരിക്കാനെത്തി

ആരോഗ്യമന്ത്രി കെ കെ ശൈലജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി വാക്സിൻ സ്വീകരിച്ചു

കഴിഞ്ഞ ഏഴ് ആഴ്ചകൾക്കിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത് പതിരോധ് പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച അരുതെന്ന് സംഘട്ടന്റ് ഗമേധാവി തെദ്രോസ് അഥാനം ഗബ്രിയേസസ് ലോക്കരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു

എം എസ് ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്

എസ് ആർ ടി

സ്വകാര്യ ബസുകൾ എന്നിവയും ഓട്ടോ ടാക്സി രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള പണിമുടക്കിൽ പങ്കുചേരുന്നുണ്ട്

ലേലം ഇന്നും തുടരുകയാണ് ഭാരതി എയർടെൽ വോഡഫോൺ ഐഡിയ റിലയൻസ് ജിയോ ഇൻഫോകോം എന്നീ മൂന്ന് കമ്പനികൾ ലേലത്തിൽ പങ്കെടുക്കുന്നു

ബി എസ് ഇ പത്താം ക്ലാസ് സോഷ്യൽ സയൻസ് പരീക്ഷയുടെ സിലബസ് കുറച്ചതായി ്രസാമൂഹ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വാർത്ത കേന്ദ്ര സർക്കാർ തള്ളി

ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്കാണ് മത്സരം

സ്വർണ്ണവില കുറഞ്ഞു

എ ഇ യിൽ നിന്നുളള ആദ്യത്തെ സ്ഥാനപതിയെ ഇസ്രയേൽ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു ഇരു രാജ്യങ്ങൾക്കുമിട യിലെ ബന്ധം സാധാരണ നിലയിൽ എത്തിക്കുന്നിതിനായി കഴിഞ്ഞ വർഷം ഒപ്പു വച്ച കരാറിനെ തുടർന്നാണ് നടപടി ഇന്നലെ ജറുസലേമിൽ നടന്ന ചടങ്ങിലാണ് യു

ഇ പ്രതിനിധിയായ മുഹമ്മദ് അൽ ഖജയെ ഇസ്രായേൽ പ്രസിഡന്റ് റുവെൻ റിവ്ലിൻ സ്വീകരിച്ചത് കരാർ പ്രകാരം ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന ആദ്യരാജ്യമാണ് യുഎഇ

കോവിഡ് ബാധിതനായ ഇദ്ദേഹം ് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു

ചരക്കുമായി വന്ന ട്രക്ക് നിയന്ത്രണം വിട്ടതാണ് അപകടത്തിനു കാരണം